ഉപരാഷ്ട്രപതി എം

വ്യാപാര നിക്ഷ്പ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു പങ്കെടുക്കും

ഇൻഡോറിൽ ദാവൂദി ബോറ സമൂഹം സംഘടിപ്പിക്കുന്ന ഇമാം ഹുസൈന്റെ അനുസ്മരണ പരിപാടിയായ ആഷാറ മുബാരക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും

മദ്ധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് ്സിക്ഗ് ചൌഹാനും ചടങ്ങിൽ പങ്കെടുക്കും

സെർബിയ മാൾട്ട റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് ഏഴ് ദിവസത്തെ സന്ദർശനവേളയിൽ കൃഷി വിനോദസഞ്ചാരം എന്നീ മേഖലകളിലെ വിവിധ കരാറുകളിൽ ശ്രീ വെങ്കയ്യ നായിഡു ഒപ്പുവയ്ക്കുമെന്ന് വിദേശകാരൃ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ഡോ

ആദ്യം സെർബിയ സന്ദർശിക്കുന്ന അദ്ദേഹം രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മാൾട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ഇരു രാജ്യങ്ങൾക്ക് പൊതുതാൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ചചെയ്യും ഇന്ത്യൻ ഐ ടി മേഖലയ്ക്ക് മികച്ച സാധ്യതകളാണ് മാൾട്ടയിൽ ഉള്ളതെന്നും സേവന മികവ് ആ രാജ്യത്തിനായി പ്രയോജനപ്പെടുത്തണമെന്നും ഡോ

ചൊവ്വാഴ്ച അദ്ദേഹം റൊമാനിയയിൽ എത്തും ഈ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് ചരിത്രപരമായ ബന്ധമാണുള്ളതെന്നും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം രാജ്യങ്ങൾ തമ്മിലുള്ള അടുപ്പം ഊട്ടിയുറപ്പിക്കുമെന്നും ഡോ അഞ്ചു കുമാർ പ്രത്യാശ പ്രകടിപ്പിച്ചു

ആഗോള വാണിജൃ രംഗത്തെ വെല്ലുവിളികൾ പുത്തൻ വൃവസായിക വിപ്തവം എന്നീ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും ലോക വ്യാപാര സംഘടനയിൽ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുമ്പോഴും ലോക വ്യാപാരം നിയന്ത്രിക്കുന്ന ശക്തിയായി സംഘടന തുടർന്ന് പ്രവർത്തിക്കണമെന്നാണ് ന്യൂഡൽഹി ആഗ്രഹിക്കുന്നതെന്ന് മന്ത്രിയുടെ ട്വീറ്റർ സന്ദേശത്തിൽ പറയുന്നു

തങ്ങളുടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന ഉരുക്ക് ആലുമിനിയം ഉൽപന്നങ്ങൾക്ക് അമേരിക്ക കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സമ്മേളനത്തിന് പ്രത്യേക പ്രാധാന്യമാണുള്ളത്

ഇരു രാജ്യങ്ങളും തമ്മിലുളള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വർധിപ്പിക്കാൻ റഷ്യയുടെ വാണിജ്യ വൃവസായ മന്ത്രിയുമായും ശ്രീ സുരേഷ് പ്രഭു ചർച്ച നടത്തി ഖനനം കൃഷി വിനോദസഞ്ചാരം എന്നീ മേഖലകളിലെ സഹകരണം വർധിപ്പിക്കുന്നതിനുളള സ്ഥ്യതകളും ചർച്ചാവിഷയമായി

വരൾച്ച മൂലം കഴിഞ്ഞ റാബി വിളവെടുപ്പ് കാലത്ത് വൻ കൃഷി നഷ്ടമുണ്ടായത് കണക്കിലെടുത്താണ് ഉത്തർ പ്രദേശിനുള്ള സാമ്പത്തിക സഹായം മഹാരാഷ്ട്രയിൽ ചുഴലിക്കാറ്റും കീടാക്രമണവും വരുത്തിവച്ച കൃഷി നഷ്ടം മുൻനിർത്തിയാണ് സഹായം അനുവദിച്ചത് ആഭൃന്തര മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത തല സമിതിയുടെ ശുപാർശയനുസരിച്ചാണ് അധിക സാമ്പത്തിക സഹായത്തിനുള്ള തീരുമാനം

ഭഗവാൻ ഗണപതിയ്ക്കു സ്തുതികൾ പാടിയും ശ്രീ രാമചരിതമാനസ പാരായണം നടത്തിയുമാണ് രാംലീലയ്ക്കു തുടക്കമായത്

പ്രാദേശിക സഞ്ചാരികളെ മാത്രമല്ല ആയിരക്കണക്കിന് വിദേശ വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നതാണ് അവിസ്മരണീയ അനുഭവമൊരുക്കുന്ന രാംലീല ഉത്സവം

റഷ്യൻ ഫെഡറേഷൻ ഉപപ്രധാനമന്ത്രി യൂറി ബൊറിസോവും ശ്രീമതി സ്വരാജും സംയുക്തമായാണ് യോഗത്തിൽ അധൃക്ഷത വഹിക്കുന്നത് വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം വിലയിരുത്താനാണ് കമ്മീഷനെ നിയോഗിച്ചത്

വിലയിരുത്തലിന് ശേഷം മേഖലകളുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ നയ്കപരമായ ശുപാർശകളും നിർദ്ദേശങ്ങളും സമർപ്പിക്കും

പ്രളയാന്മന്ത്ര ആവശ്യങ്ങൾ നേരിട്ടറിയാൻ യു എൻ സംഘം സംസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു

ഊർജം ജലവിഭവം ആഭ്യന്തരം റോഡ് ഗതാഗതം ഹൈവേ കുടിവെള്ള വിതരണ ഗ്രാമവികസനം കാർഷിക സഹകരണവും കർഷക ക്ഷേമവും ധനകാരൃ മന്ത്രാലയങ്ങളിലെ ജോയിന്റ് സെക്രട്ടറിമാർ സംഘത്തിലുണ്ടാവും കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയും നിതി ആയോഗ് ഉപദേശകനും ഇവർക്കൊപ്പം എത്തും

ഇവർ തിങ്കളാഴ്ച ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും

ലോക ബാങ്കിന്റേയും ഏഷ്യൻ വികസന ബാങ്കിന്റേയും പ്രതിനിധികൾ നേരത്തേ തന്നെ സംസ്ഥാനത്തെത്തി ദുരന്ത സ്ഥലങ്ങളിൽ സന്ദർശനം ആരംഭിച്ചിട്ടുണ്ട്

പ്രാദേശിക ഭരണകൂടവുമായി സഹകരിച്ച് ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും താമസവും ലഭ്യമാക്കിയിട്ടുണ്ട്

ടീമിലെ മറ്റ് കളിക്കാരായ വിജയ്വീർ സ്ടിദ്ദു നാലാം സ്ഥാനത്തും രാജ്കൻവാർ സിങ് സന്ധു ഇ്രുപ്പതാം സ്ഥാനത്തുമെത്തി ഇതൊടെ ഒമ്പത് സ്വർണവും എട്ട് പ്പെള്ളിയും ഏഴ് വെങ്കലവുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നാലുംസ്ഥാനത്താണ്

മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധൃക്ഷതയിൽ ഇന്നലെ പാട്നയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം സംഭവം നടന്ന് ഒരു മാസത്തിനുള്ളിൽ ഇടക്കാല ധനസഹായം വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃാബിനറ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി സജ്ഞയ്കുമാർ പറഞ്ഞു

ആൾക്കൂട്ട അക്രമങ്ങൾക്കെതിരെയുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ബിഹാർ ഗവൺമെന്റിന്റെ പുതിയ നടപടി

ജെ പി യുടെ വിദ്യാർത്ഥി സംഘടനയായ എ

വി

സ്ഥാനാർത്ഥികളായ അങ്കീവ് ബസോയ ശക്തി സിങ് ജ്യോതി എന്നിവരാണ് യഥാക്രമം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്

യു സ്ഥാനാർത്ഥി ആകാശ് ചൌധരി സെക്രട്ടറി സ്ഥാനത്തേയ്ക്ക് വിജയിച്ചു ഫലം പുറത്തുവന്നയുടൻ എ ബി വി

പ്രവർത്തകരെ അഭിനന്ദിച്ച ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ എ ബി വി

തിരഞ്ഞെടുപ്പ് വിജയത്തിന് സഹായിച്ച എല്ലാ പ്രവർത്തകരേയും അദ്ദേഹം അഭിനന്ദിച്ചു